ഉഭയകക്ഷി പ്രശ്നങ്ങളിൽ ഇന്ത്യയും ചൈനയും ധാരണയിൽ എത്തണമെന്ന് വിദേശകാര്യ മന്ത്രി എസ്

കേരളത്തിൽ ഡിജിറ്റൽ സ്റ്റർവ്വകലാശാല സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീർുമാനം

ശബരിമലയിൽ മകർജ്യോതി തെളിഞ്ഞു ദർശന പുണ്യം നേടി ഭക്ത ലക്ഷങ്ങൾ

പശ്ചിമേഷ്യയിൽ നിന്ന് വിദേശ ശക്തികൾ സൈനൃത്തെ പിൻവലിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസ്സൻ റൂഹാനി

ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ സന്തുലിതവും സ്ഥിരതയും ഉണ്ടാവേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ റയ്സിന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

അന്താരാഷ്ട്ര വിഷയങ്ങളിൽ നിന്ന് മാറി നില്ക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയ്ക്ക് സുപ്രധാന പങ്കു വഹിക്കാനാവുമെന്ന് നിരവധി രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കാലാവസ്ഥാ വൃതിയാനം സംബന്ധിച്ച പാരീസ് കരാറിൽ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഉറച്ചു നിൽക്കുകയാണെന്ന് ശ്രീ ജയ്ശങ്കർ പറഞ്ഞു

വോയ്സ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ കരസേന മേധാവിയായി ജനറൽ കെ

ഏതു സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സുസജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ പറഞ്ഞു

ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് പിന്തുടരുന്നതെന്ന് കരസേനാ മേധാവി ആവർത്തിച്ചു വ്യക്തമാക്കി

കേന്ദ്ര ഭരണ പ്രദേശത്തെ മുഖ്യധാരയുമായി സംയോജിപ്പിക്കാൻ ഇത് സഹായകര മാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദിനാഘോഷത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആശംസകൾ നേർന്നു

അഗർത്തലയിലെ നാഷണൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൌരോർജ്ജ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി പിന്നീട് വടക്കു കിഴക്കൻ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസരംഗത്ത് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്തു

ജനങ്ങൾ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയാണ് ജമ്മുവിൽ നവീകരിച്ച മൌലാന ആസാദ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തശേഷം വാർത്താലേഖകരോട് സ്ട്സ്ട്രിക്കുകയായിരുന്നു അദ്ദേഹം

വരും മാസങ്ങളിൽ എല്ലാ വാർത്താ വിനിമയ സംവിധ്മാനങ്ങളും പൂർണമായി പുനസ്ഥാപിക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചു

വോയിസ് ഓഫ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ സാമൂഹ്യ മാധ്യമങ്ങൾ മൊബൈൽ സേവനങ്ങൾ തുടങ്ങിയവ ഇത്തരം പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കാൻ പ്രയോജനപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്

നിലവിൽ സൈനികർക്കും തെരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ഉദ്യോഗസ്ഥർക്കുമാണ് ഈ സൌകര്യമുള്ളത്

ഈ സ്ഥിതിക്ക് മാറ്റം വരാനാണ് ബോധവൽക്കരണം ്വേത് ഗവൺമെന്റ് ആശുപത്രികളിൽ അവയവമാറ്റത്തിനായി കൂടുതിൽ സൌകര്യങ്ങളും സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തേത് അനിവർത്ത്മാണെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു ഒരുവർഷം രൂലക്ഷം കരൾമാറ്റ ശസ്ത്രക്രിയ വേതായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്

ആരോഗ്യരംഗം വലിയ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുങ്കെിലും ആയുഷ്മാൻ ഭാരത് പോലുള്ള ആരോഗ്യ പദ്ധതികൾ ഈ സ്ഥിതി നേരിടാൻ സഹായകമാണ്

രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഇതിനുവേി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണ റോട് ശുപാർശ ചെയ്യും

ഭക്തജന ലക്ഷ്ടുങ്ങളാണ് സന്നിധാനത്തും പരിസരങ്ങളിലും മകരവിളക്ക് ദർശനത്തിന്ട് എ്ത്തിയിരുന്നത്

ഈ സമയത്ത് പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിഞ്ഞുപ്പ് ദർശനപുണ്യം നേടിയ ഭക്തർ ഇപ്പോൾ മലയിറങ്ങുകയാണ്

സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിലല്ലാത്ത കാര്യത്തിൽ നിയമസഭ പ്രമേയം പാസാക്കിയതിനെയാണ് താൻ വിമർശിച്ചതെന്നും ഗവർണർ കൊല്ലത്ത് പ്രതികരിച്ചു

വിദേശ ശക്തികളുടെ സാന്നിധ്യം മേഖലയെ ദുർബലമാക്കുകയാണെന്ന് ടെലിവിഷൻ സംപ്രേഷണത്തിൽ റുഹാനി പറഞ്ഞു ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കുന്ന തിനെതിരെ ബ്രിട്ടൺ ഫ്രാൻസ് ജെർമനി എന്നീ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റുഹാനിയുടെ പ്രസ്താവന അമേരിക്ക ഇറാൻ സംഘർഷം ആരംഭിച്ചശേഷം ആദ്യമായാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ രംഗത്തുവരുന്നത്

ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്ന് ഒരു യോഗൃതാ മത്സരാർത്ഥി കളിയിൽ നിന്ന് പിൻമാറിയിരുന്നു

ഇംഗ്ലണ്ടിൽ നടന്ന ഏകദിന ലോക കപ്പിനിടെ ഓസീസ് താരം സ്റ്റീവ് സ്മിത്തിനെ കൂകി വിളിച്ച ആരാധകരെ തടയുകയും ്് തിരുത്തുകയും ചെയ്തതിനാണ് പുരസ്ക്കാരം

വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാലു പ്രതികളിൽ ഒരാളായ മുകേഷ് സിംഗാണ് ദയാഹർജി ്നൽകിയത് പ്രതികളുടെ പിഴവു തിരുത്തൽ ഹർജി സുപ്രീംകോടതി ഇന്നലെ തള്ളിയതിനു തൊട്ടു പിന്നാലെയാണ് ഇയാൾ ദയാഹർജി നൽകിയത്